നിശ്ചയിക്കുന്നതിനുള്ള സമിതിയുടെ ആദ്യയോഗം ഇന്ന്

ജോളി ഉൾപ്പെടെയുള്ള പ്രതിക്കിള്ള് കോടതി ആറ് ദിവസത്തെ പോലീസ് കസ്റ്റ്ഡീയിൽ വിട്ടു ഡ്രൈവർ ക്ഷാമം മൂല്യം ഇന്നും കെ എസ് ആർ ടി

നിരവധി സർവ്വീസ്കുകൾ റദ്ദാക്കി

ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സജീവമായി

ഇന്ന് മുതൽ സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ സൂചന

രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം

എസ് ആർ എ മുൻ എഞ്ചിനീയർ ആർ മുരുകേശൻ എന്നിവർ അംഗങ്ങളാണ്

ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് ചുമതലപ്പെടുത്തിയ കമ്പനികൾ ഇന്ന് മരടിലെത്തും നാളെയാണ് പൊളിക്കാനുള്ള ഫ്ളാറ്റുകളുടെ പട്ടിക കമ്പനികൾക്ക് കൈമാറുക

പൊളിക്കലിന് നേതൃത്വം വഹിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനുമായി സംസ്ഥാന ഗവൺമെന്റ് ചുമതല്ക്പ്പടുത്തിയ നിയന്ത്രിത സ്ഫോടന വിദഗ്ദ്ധൻ ശരത് ബി സർവാത്ത് ഇന്ന് മരടിൽ എത്തും

കോഴിക്കോട് കൂടത്തായി കോഴിക്കോട് കൂടത്തായി ദുരൂഹമരണ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ജോളിയുൾപ്പടെയുള്ള പ്രതികളെ താമരശ്ശേരി കോടതി ആറ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇന്ന് രാവിലെ പത്ത് മണിയോടെ കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നും കനത്ത സുരക്ഷാ സന്നാഹത്തോടെയാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത് ജോളി പ്രജികുമാർ മാത്യു എന്നിവരെ പ്രത്യേക വാഹനങ്ങളിലാണ് കോടതിയിൽ എത്തിച്ചത്

ആദ്യ കേസായി പരിഗണിച്ചാണ് കോടതി പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത് കണ്ണൂർ സസ്പെൻഡ് കണ്ണൂർ പിണറായിലെ കൂട്ടക്കൊലപാതക കേസിൽപ്പെട്ട പടന്നക്കരയിലെ സൌമ്യ ജയിലിൽ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് പേരെ ജയിൽ ഡി ജി പി സസ്പെൻഡ് ചെയ്തു കണ്ണൂർ വനിത ജയിൽ സൂപ്രണ്ട് ടി ശകുന്തള അസി സൂപ്രണ്ട് സി

രമ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്

ഗുരുതരമായി പൊള്ളല്ടേറ്റ ദ്ദേവികയും പറവൂർ സ്വദേശി മിഥുനുമാണ് മരിച്ചത് കാസർകോട് കാസർകോട് യുവതിയെ കൊലപ്പെടുത്തി ചന്ദ്രഗിരിപ്പുഴയിൽ താഴ്ത്തിയതായ സംശയത്തെ തുടർന്ന് തെരച്ചിൽ ആരംഭിച്ചു വിദ്യാനഗർ സ്വദേശി പ്രമീളയെ കാണാനില്ലെന്ന് ഭർത്താവ് സിൽജോ പരാതി നൽകിയിരുന്നു സിൽജോയുടെ മൊഴിയിൽ വൈരുധ്യമുണ്ടെന്ന് പൊലീസ് പറഞ്ഞു

സി ഡ്രൈവർ ക്ഷാമം മൂലം ഇന്നും കെ എസ് ആർ ടി സി നിരവധി സർവ്വീസുകൾ റദ്ദാക്കി

ദിവസ വേതനക്കാരെ നിയമിച്ച് പ്രതിസന്ധിക്ക് പരിഹാരം കാണുമെന്ന് അധികൃതർ വൃക്തമാക്കിയിരുന്നുവെങ്കിലും നടപടി ആയിട്ടില്ല

അനിശ്ചിതകാലത്തേക്കാണ് ബസ് ഉടമസ്ഥരും തൊഴിലാളി യൂണിയനുകളും സമരം

ഔഫീസിലേക്ക് മാർച്ച് നടത്തും പള്ളിത്തർക്കം എറണാകുളം പിറവം പള്ളിത്ത്ർക്ക് കേസിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും പള്ളിയുട്ടെ ത്യാക്കോൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറുന്ന വിഷയത്തീലാണ് ഹർജി സുപ്രീം കോടതി വിധിയനുസരിച്ച് പള്ളിയുടെയും ചാപ്പലിന്റെയും ഉടമസ്ഥാവകാശം കൈമാറണം എന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗമാണ് ഹർജി നൽകിയത് പള്ളിയുടെ ഉടമസ്ഥാവകാശം കൈമാറരുതെന്ന് യാക്കോബായ വിഭാഗം ഹർജിയിൽ ആവശ്യപ്പെട്ടു

ഇതനുസരിച്ചുള്ള എം സി എൽ

എന്നാൽ സമ്പാദ്യ നിക്ഷേപങ്ങൾക്കുള്ള പുതുക്കിയ വായ്പാ നിരക്ക് അടുത്ത മാസം ഒന്ന് മുതലായിരിക്കും പ്രാബല്യത്തിൽ വരികയെന്ന് സ്റ്റേറ്റ് ബാങ്ക് അറിയിച്ചു

സമൂഹ മാധ്യമങ്ങളിലെ കുപ്രചരണം തള്ളി ലൈഫ് ഇൻഷറൻസ് കോർപ്പറേഷൻ പോളിസി ഉടമകളുടെ പണം തങ്ങളുടെ കൈയ്യിൽ സുരക്ഷിതമെന്ന് എൽ

കോർപ്പറേഷൻ വൻ നഷ്ടത്തിലാണെന്ന സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണത്തിന് മറുപടിയായാണ് എൽ

സ്ഥാപനം സാമ്പത്തികമായി ഭദ്രമാണെന്നും മറിച്ചുള്ള കുപ്രചരണങ്ങൾക്ക് വശം ഉടമ്കളോട് എൽ

ബൂത്തുകളിലേക്കുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ജോലികൾ അതത് കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു അരൂരിൽ മൂന്നു മുന്നണികളും റോഡ് ഷോ ആരംഭിച്ചു

ഡി എഫ് നേതാക്കളായ വയലാർ രവി കെ സുധാകരൻ എന്നിവരും എൽ ഡി എഫുമായി മന്ത്രിമാരായ ജി സുധാകരൻ തോമസ് ഐസക് എന്നിവരും പ്രചാരണം നയിക്കുന്നു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

വിദഗ്ദ്ധ പരിശോധനയ്ക്കുശേഷം തിരിച്ചെത്തിയ എ ഐ സി

ഇന്ന് അദ്ദേഹം തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പ്രചാരണം നടത്തും കോന്നിയിൽ മന്ത്രിമാരായ എം

മണി മേഴ്സിക്കുട്ടിയമ്മ കെ

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് മഞ്ചേശ്വരത്ത് വിവിധ യോഗങ്ങളിൽ സംബന്ധിക്കുന്നു സായാഹ്ന ധർണകൾ ഇടതുപാർട്ടികളുടെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇന്ന് സംസ്ഥാന വ്യാപകമായി എൽ ഡി എഫ്

തിരുവനന്തപുരം ആർ എം

ഓഫീസിനു മുന്നിൽ സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്യും

സി പരീക്ഷ തൊഴിൽ പരീക്ഷകൾക്കുള്ള ചോദ്യക്ക്ടലാസുകൾ ഇംഗ്ലീഷിനൊപ്പം മലയാളത്തിലും നൽകുന്നതിൽ പി എസ്

മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചുചേർത്ത വൈസ് ചാൻസലർമാരുടെ യോഗത്തിന്റേതാണ് തീരുമാനം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫ

കാർത്തികേയൻ നായർ കൺവീനറായ സമിതിയിൽ മലയാളം സംസ്കൃതം സർവകലാശാലകളുടെയും കേരള മഹാത്മാ ഗാന്ധി കോഴിക്കോട് കണ്ണൂർ സർവകലാശാലകളുടെയും പ്രതിനിധികൾ ഉണ്ടാകും

ഈ വസ്തുതകളിലേക്ക് ജനശ്രദ്ധ തിരിച്ച് പരിഹാര മാർഗ്ഗങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുകയാണ് ലക്ഷ്യം ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് തിരുവനന്തപുരം പേരൂർക്കട മാനസിക ആരോഗ്യ കേന്ദ്രം ചീഫ് സൈക്യാട്രിസ്റ്റ് ഡോ

കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള തൃശ്ശൂർ തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെയും മറ്റന്നാളും മഴയ്ക്ക് സാധ്യതയുണ്ട്

സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് യോഗം വിളിച്ചത്

ടോസ് നേടിയ ഇന്ത്യ ബാറ്റിങ് തെരഞ്ഞെടുത്തു

ഇന്ന് ജയിച്ചാൽ പരമ്പര ഇന്ത്യ നേടും ഡീൻ കുര്യാക്കോസ് പൂർണമായും കടക്കെണിയിലേക്ക് തള്ളിവിടുന്ന കർഷകരെ സമീപനമാണ് കേന്ദ്രസംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് എം

ഇടുക്കിയിൽ തേയില കർഷക ഫെഡറേഷൻ സംഘടിപ്പിച്ച കർഷകസമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പ്ലാസ്റ്റിക് ഉൾപ്പെടെ മാലിന്യങ്ങൾ ഓരോരുത്തരും സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് മേയർ ആവശ്യപ്പെട്ടു

മുന്നൂറ്റി നെയ്യാറ്റിൻകര കുഴീത്തുറ എന്നിവിടങ്ങളിൽ ഇറക്കി പൂജയ്ക്ക് ശേഷം ശനിയാഴ്ച വൈകിട്ട് വിഗ്രഹങ്ങൾ പത്മനാഭപുരം കൊട്ടാരത്തിലെത്തും

പ്രേമചന്ദ്രൻ എം